ഏറ്റുമുട്ടലിൽ രണ്ട്ട് കൃപ്രവാദികൾ കൊല്ലപ്പെട്ടു

നുള്ള പ്രചാരണം സജീവം

ട്ടന്റി മത്സരം ഇന്ന് ലക്നൌവിൽ നടക്കും

എസ് റഷ്യ ഫ്രാൻസ് ചൈന യുകെ എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ

ആശങ്കകളും നിലനിൽക്കുന്ന ഇന്നത്തെ ലോകത്തിന് സമാധാനവും സുസ്ഥിരതയും സമ്മാനിക്കാൻ ശക്തമായ ഒരു ഇന്ത്യ കൂടിയേ തീരൂ ലോകസമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് ഇന്തൃയുടെ ആണവ പദ്ധതികളെന്നും ആണവായുധങ്ങൾ ആദ്യം പ്രയ്ക്കിക്കില്ലെന്ന രാജ്യത്തിന്റെ നയങ്ങളിൽ മാറ്റമില്ലെന്നും പ്രധാന്തമുന്ത് ചൂണ്ടിക്കാട്ടി

മികവുറ്റ ആണവ അന്തർവാഹിനികളുടെ രൂപരേഖ നിർമ്മാണം പ്രവർത്തനം എന്നിവ നിർവ്വഹിക്കാൻ കഴിവുള്ള വളരെ കുറച്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതോടെ ഇന്ത്യയും സ്ഥാനം പിടിച്ചതായി രാജ്യരക്ഷാമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ധനമന്ത്രി അരുൺജയ്റ്റ്ലി ബി ജെ

ഈ വിജയത്തോടെ രാജ്യം കര വായു സമുദ്രം എന്നീ മൂന്നു വിഭാഗങ്ങളിലും ആണവശേഷി കൈവരിച്ചതായും രാജ്യ സുരക്ഷ ഉറപ്പാക്കാൻ ഇത് ഉപകരിക്കുമെന്നും കേന്ദ്രമന്ത്രി രാജൃവർധൻ റാത്തോഡും അഭിപ്രായപ്പെട്ടു ന്യൂസ്ഡെസ്ക് ആകാശവാണി

തെക്കൻ കശ്മീരിലെ ഷോപിയാൻ ജില്ലയിൽ ഇന്നു രാവിലെയായിരുന്നു വെടിവയ്പ് കൊല്ലപ്പെട്ട ഭീകരർ ഹിസ്ബുൾ മുജാഹിദീൻ അംഗങ്ങളാണ് സംഭവസ്ഥലത്തു നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു

മാവോയിസ്റ്റ് സാന്നിദ്ധ്യ മുള്ള മേഖലകളിലാണ് ആദ്യഘട്ട തെരെഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതിനാൽ കനത്ത പോലീസ് സുരക്ഷയോടെയാണ് പ്രചാ രണം പുരോഗമിക്കുന്നത്

ഏറ്റവും കൂടുതൽ ്നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് റീവയിലാണ്

ഡി എസ് സഖ്യത്തിന് ശക്തമായ മുന്നേറ്റം രാമനഗരം നിയമസഭ സീറ്റിൽ കർണാടക മുഖ്യമന്ത്രി എച്ച്

ബെല്ലാരി ലോക്സഭ സീറ്റിൽ കോൺഗ്രസിന്റെ വി

മാണ്ഡ്യ ലോക്സഭ സീറ്റിൽ ജെ

എസ് സ്ഥാനാർത്ഥി എൽ

ബിജെപി മുന്നേറുന്ന ഷിമോഗ സീറ്റിൽ ബീ ജെ പി നേതാവ് ബി

രാഘവേന്ദ്ര ലീഡ് ചെയ്യുകയ്യാണ്

കനത്ത പോലീസ് സുരക്ഷയിൽ ഭക്തർ സുഗമമായി ദർശനം നടത്തി മടങ്ങുകയാണ്

ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ സന്നിധാനം ശാന്തമാണ്

അതേസമയം ദർശനത്തിനായി ശബരിമലയിൽ യുവതി എത്തി എന്ന അഭ്യൂഹത്തെ തുടർന്ന് വലിയ നടപന്തലിൽ സംഘർഷം ഉണ്ടായി

പ്രായം തെളിയിക്കുന്ന രേഖ ഹാജരാക്കിയിട്ടും പ്രതിഷേധം തുടർന്നതോടെ പോലീസെത്തി സമ രക്കാരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഇവരെ ദർശനത്തിനായി കൊണ്ടുപോയി

സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെതന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്

ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ മുഖ്യമുന്ത്രിമാർ തുടങ്ങിയവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു

പ്രധാനന്ത്രിയുടെ സന്ദർശനത്തോട് അനു ബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ത്

ഇന്നു വൈകുന്നേരം നടക്കുന്ന ചടങ്ങു കളിൽ ലോക റെക്കാർഡ് ലക്ഷ്യമിട്ട് സരയൂ നദീതീരത്ത് മൂന്ന ലക്ഷത്തിധികം മൺവിളക്കുകളും തെളിയും

ദക്ഷിണകൊറിയൻ രാജ്ഞിയായിരുന്ന ഹൊ യുടെ പേരിൽ നദീതീരത്ത് സഥാപിക്കുന്ന സ്മാരകത്തിന്റെ ശിലാസ്ഥാപനവും അവർ നിർവ്വഹിക്കും അയോധ്യ സ്വദേശിനിയായിരുന്ന രാജകു മാരി ഹൊ ദക്ഷിണ കൊറിയൻ രാജാവിനെ വിവാഹം ചെയ്തതാ യാണ് ചരിത്രം രാമായണ സന്ദർഭങ്ങളുടെ പുനരാവിഷ്കരണവും സരയൂ ആരതി തുടങ്ങിയവയും ഇന്ന് ഏറ്റ്യോധ്യയിൽ നടക്കും ചടങ്ങുകൾക്ക് ഉത്തർപ്രദേശ് മുഖ്യമുന്തി യോഗി ആദിത്യനാഥ് നേതൃത്വം നൽകും

കൊളംബോ അടക്കമുള്ള നഗരങ്ങളിലെ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ തന്നെ വൻ ഭക്തജനതിരക്ക് അനുഭവപ്പെട്ടു ഇന്ന് വൈകുന്നേരം ക്ഷേത്രങ്ങളിൽ പ്രത്യേക നടക്കും തിൻമയ്ക്കുമേൽ നൻമ ചടങ്ങുകളും നേടിയ വിജയത്തിന്റെ ചരിത്രം പേറുന്ന ദീപാവലി മനുഷ്യമനസ്സുകളിൽ അറിവും ആത്മീയ അച്ചടക്കവും അടക്കമുള്ള മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും വൃക്തമാക്കുന്നതായി പ്രസിഡന്റ് മൈത്രിപാല സിരിസേന അഭിപ്രായപ്പെട്ടു

മലിനീകരണത്തിനിടയാക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി വളരെ പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു

ലക്നൌവിൽ പുതുതായി നിർമ്മിച്ച ഏകന സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്

ഇൻഡ്യയെ പ്രതിനിധീകരിച്ച് കിഡ്ഢബി ശ്രീകാന്ത് പി